സഹായങ്ങളും ഗവൺമെന്റ് നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ സംഘടിപ്പിച്ച കാർപ്പറ്റ് മേളയെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി വിശദാംശങ്ങളുമായി വീണ മുകുന്ദൻ വോയ്സ് കാർപ്പെറ്റ് ഉൽപാദകർക്ക് മതിയായ രീതിയിൽ ഗോഡൌൺ ഷോ റൂം സൌകരൃങ്ങൾ ലഭൃമാക്കാൻ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും കാർപ്പറ്റ് വ്യവസായത്തെ പരിപോഷിപ്പിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

മെയ്ഡ് ഇൻ ഇന്ത്യ കാർപ്പറ്റിനെ ഒരു വലിയ ബ്രാൻഡ് ആക്കി മാറ്റുന്നതിൽ പങ്ക് വഹിച്ച കാർപ്പറ്റ് നിർമ്മാതാക്കളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു നെയ്ത്തുകാരേയും കരകൌശല വിദഗ്ധരേയും സഹായിക്കാൻ വിവിധ നടപടികൾ സ്വീകരിച്ചതായും ശ്രീ

എല്ലാവരും വിദ്യാഭ്യാസം നേടിയ ഇന്ത്യ എന്ന് പ്രധാനമന്ത്രിയുടെ സ്വപ്നം സാക്ഷാത്ക്കരിക്കാൻ ഈ മേഖ്ലല്യിലെ തൊഴിലാളികൾ തങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസ്ം ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്ന് ചടങ്ങിൽ സംസ്ടൂരിച്ച് കേന്ദ്ര ടെക്സ്റ്റൈയിൽസ് മന്ത്രി സ്മൃതി ഇറാനി അറിയിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി ജസ്റ്റിസ് എസ്

കൌൾ എന്നിവരടങ്ങിയ ബഞ്ചാണ് ഇക്കാര്യം അറിയിച്ചത്

കമ്മീഷണർമാരായ സുനിൽ അറോറ അശോക് ലാവാസാ എന്നിവരും ഉൾപ്പെടുന്നതാണ് സംഘം ഇന്ന് ഹൈദരാബാദിലെത്തുന്ന സംഘം വിവിധ് രാഷ്ട്രീയ പാർട്ടികളുമായും പോലീസ് ഉദ്യോഗസ്ഥരുമായും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ വിവിധ വകുപ്പ് മേധാവികൾ എന്നിവരുമായും ചർച്ച നടത്തും

മാതൃകാ പെരുമാറ്റ ചട്ടം നടപ്പിലായതിന് ശേഷം രാഷ്ട്രീയ പാർട്ടികളുടെ ഏതെങ്കിലും തരത്തിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളോ ആക്ഷേപാർഹമായ വസ്തുതകളോ ഉണ്ടോയെന്ന് പരിശോധിക്കുകയാണ് കമ്മീഷൻ നാമനിർദ്ദേശ പത്രിക സമർപ്പണ സമയത്ത് സ്ഥാനാർത്ഥിയുടെ സോഷ്യൽമീഡിയ അക്കൌണ്ട് വിശദാംശങ്ങളും നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായി സംസ്ഥാനത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ്സുബ്രത് സാഹു പറഞ്ഞു മീഡിയ സർട്ടിഫിക്കേഷൻ ആന്റ് മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിശോധിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ സ്ഥാനാർത്ഥീകൾ നൽകുന്ന പരസ്യങ്ങളും ഇവരുടെ തെരഞ്ഞെടുപ്പ് ച്രെല്വുകളിൽ ഉൾപ്പെടുത്തുമെന്ന് ശ്രീ

സ്വകാര്യ ബസ് ട്രക്കുമായി കൂട്ടിയിടിച്ചാണ് അപകടം ഔറംഗാബാദിൽ നിന്ന് പൂനെയിലേയ്ക്ക് പോകുകയായിരുന്ന ബസ്റ്റാണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർക്ക് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും റോഡിൽ നിർത്തിയിട്ടിരുന്ന ട്രക്കിലേയ്ക്ക് ഇടിക്കുകയുമായിരുന്നു

ഡൽഹിയിൽ പെട്രോൾ ഡിലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരം ഇന്ന് രാവിലെ ആറ് മണി മുതൽ ആരംഭിച്ച സമരം നാളെ രാവിലെ അഞ്ച് വരെയാണ് അതിനിടെ ഡൽഹിയിൽ പെട്രോൾ ഡീസൽ എന്നിവയിലെ നികുതിയിനത്തിൽ അഞ്ച് രൂപ കുറവു വരുത്തണമെന്ന് ബി

പി ആവശ്യപ്പെട്ടു

മെദോര ഗ്രാമത്തിലെ സി

സേന ശക്തമായി പ്രതിരോധിച്ചെങ്കിലും എസ്

ഇരുട്ടിന്റെ മറവിൽ തീവ്രവാദികൾ രക്ഷപ്പെട്ടു

കഴിഞ്ഞ ദിവസം രാത്രി പാക്കിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശൃയ്ക്ക് അടുത്തുള്ള ഘാസി ഘട്ടിലാണ് അപകടം നടന്നത്

അമിത് ഷായുടെ നേതൃത്തിൽ ബിജെപി ഇന്ത്യയിലെമ്പാടും കരുത്താർജ്ജിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു അദ്ദേഹത്തിന്റെ കഠിനാദ്ധാനവും സ്ഥിരോത്സാഹവും പാർട്ടിയുടെ മികച്ച ആസ്തികളാണ് അമിത് ഷാ യ്ക്ക് ആരോഗ്യവും ദീർഘായുസ്സുണ്ടാകട്ടേയെന്നും പ്രധാനമന്ത്രി ആശംസിച്ചു

കിനൌറിന്റെ വടക്ക് കിഴക്ക് അഞ്ച് കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ സ്ഥാനമെന്ന് അദ്ദേഹം അറിയിച്ചു കിനൌറിന് സമീപ മേഖലകളിലും പ ചെറിയ ചലനങ്ങൾ അനുഭവപ്പെട്ടിരുന്നു ജീവനോ സ്വത്തിനോ നാശനഷ്ടമുണ്ടായതായി റിപ്പോർട്ട് ഇല്ല

വേൾഡ് ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിൽ കമ്പനി ആസ്ഥാനത്തെത്തിയപ്പോയാണ് അധികൃതർ ഇക്കാരൃം അറിയിച്ചത് ഇതിനായി കൊച്ചിയിൽ ്സ്ഥലം ഏറ്റെടുത്ത് നൽകാമെന്ന് മുഖ്യമന്ത്രി കമ്പനിയെ അറിയിച്ചു ഇത് കേരളവും യു

കേരളത്തിന്റെ ഉൾനാടൻ ജലഗതാഗത മേഖലയിലും വികസന സംരംഭങ്ങൾക്കും ഡി

ഭീകരാക്രമണങ്ങളെ വകവെയ്ക്കാതെ സ്ത്രീകൾ അടക്കമുള്ളവർ വോട്ട് ചെയ്യാനെത്തിയത് ജനാധിപത്യഭരണത്തിൽ അവർക്കുള്ള വിശ്വാസമാണ് പ്രകടമാക്കിയതെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു വെല്ലുവിളികൾ ഏറ്റെടുത്ത് തെരരഞ്ഞെടുപ്പു പൂർത്തിയാക്കാൻ സാഹചര്യമൊരുക്കിയ അഫ്ഗാൻ ദേശ്വീയ ഐക്യ ഗവൺമെന്റിനേയും തെരഞ്ഞെടുപ്പ് കുമ്മീഷനെയും സുരക്ഷാ സേനയേയും ഇന്ത്യ അഭിനന്ദനം അറിയിച്ചു

വോട്ടെടുപ്പിൽ വ്യാപകമായി ക്രമക്കേട് നടന്നെന്നും ഇക്കാരൃം പോലീസോ സൈനൃമോ അന്വേഷിക്കണമെന്നുമാണ് യാമീൻ ആവശ്യപ്പെട്ടത് എന്നാൽ വോട്ടെടുപ്പിൽ അട്ടിമറി നടന്നതായി തെളിയിക്കാൻ പ്രസിഡന്റിന്റെ അഭിഭാഷകർക്ക് കഴിഞ്ഞില്ലെന്ന് കോടതി വ്യക്തമാക്കി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥി ഇബ്രാഹിം മുഹമ്മദ് സാലിഹിനോട് വൻ പരാജയമാണ് അബ്ദുള്ള യാമീൻ ഏറ്റുവാങ്ങിയത്

എൻ

ഇന്ത്യയിലെ തീരദേശ വിഭാഗങ്ങളുടെ സംരക്ഷണത്തിനുള്ള പദ്ധതിയും ഇക്കൂട്ടത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്

ടൂർണമെന്റിൽ തുടർച്ചയായ മൂന്നാം വിജയത്തോടെ ഇന്ത്യ സെമിഫൈനൽ സാധ്യ വർധിപ്പിച്ചു